രാജ്യത്ത് തൊഴിലില്ലായ്മയാണെന്ന പ്രതിപക്ഷത്തിന്റെ ദുഷ്പ്രചരണം അവസാനിപ്പിക്കണമെന്നും കഴിഞ്ഞ വർഷം ഒരുകോടിയിലധികം തൊഴിലസവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് കുറയുന്നു

ഇന്ത്യൻ ഭവനനിർമ്മാണ പദ്ധതിയുടെ ശ്രീലങ്കയിലെ ഇന്ത്യൻ തമിഴ്വംശജർക്ക് നിർമ്മിച്ച വീടുകളുടെ ആദ്യഘട്ട താക്കോൽദാന കർമ്മം ഇന്ന് പ്രധാനമന്ത്രി നിർവ്വഹിക്കും

തൊഴിലവസരങ്ങൾ ഇല്ല ്രഎന്ന പ്രതിപക്ഷത്തിന്റെ പ്രചാരണം അവസാനിപ്പിക്കണമെന്നൂർപ്പ് മാർത്താ ഏജൻസിക്ക് നല്കിയ അഭിമുഖത്തിൽ ശ്രീ

ആഭ്യന്തര ടൂറിസത്തിന്റെ വളർച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായതായും പ്രധാനമന്ത്രി പറഞ്ഞു

ലോക്സഭയിൽ അടുത്തകാലത്തായി ഉണ്ടായ അവിശ്വാസ പ്രമേയത്തിന്റെ ഫലവും രാജൃസഭാ ഉപാധൃക്ഷന്റെ തെരഞ്ഞെടുപ്പും പ്രതിപക്ഷത്തിന്റെ തകർച്ചയ്ക്കും ഉദാഹരണങ്ങളാണെന്നും തെരഞ്ഞെടൂപ്പിനിടെ ജി എസ് ടിയ്ക്കെതിരായി രാഹൂൽ ഗാന്ധി പ്രചാരണം നടത്തിയെങ്കിലും ജനങ്ങൾ അത് തിരസ്കരിക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജാതി അടിസ്ഥാനമാക്കിയുള്ള സംവരണം നീക്കം ചെയ്യാനഉള്ള സാധൃതയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ച് വരുന്ന സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ അടിച്ചമർത്തുന്നതിന് തന്റെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ്ഡസ്ക് ആകാശവാണി

ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കാമ്പസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഹർഷവർദ്ധൻ പറഞ്ഞു

കേന്ദ്ര വിവരസാങ്കേതിക വകുപ്പു മന്ത്രി രവിശങ്കർപ്രസാദും അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളും സംയുക്തമായാണ് ശിലാസ്ഥാപനകർമ്മം നിർവ്വഹിച്ചത് ഇതോടൊപ്പം രണ്ട് ഉൽപ്പദന യൂണിറ്റുകൾക്കും തുടക്കമിട്ടു കുറഞ്ഞ കാലയളവിനുള്ളിൽ പദ്ധതി പ്രാവർത്തികമായതിനാൽ മന്ത്രി രവിശങ്കർപ്രസാദ് സന്തുഷ്ടി പ്രകടിപ്പിച്ചു സാധാരണക്കാരുടെ കൈകളിലേക്ക് സാങ്കേതിക വിദ്യയുടെ ശക്തി പകർന്നു നല്കാനാണ് ഗവണ്മെന്റ് ആഗ്രഹിക്കുന്നുതെന്ന് മന്ത്രി പറഞ്ഞു

ചികിത്സയ്ക്കായി കഴിഞ്ഞ ജൂണിലാണ് ശ്രീ വാജ്പേയ് യെ എയിംസിൽ പ്രവേശിപ്പിച്ചത്

കർമ്മം ഗുണഭോക്താക്കളെ വീഡിയോ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യു

ഇന്ത്യൻ ഭവനനിർമ്മാണ പദ്ധതി വഴി പതിന്നാലായിരം വീടുകൾ നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായമാണ് ഇന്ത്യ നല്കുന്നത് ശ്രീലങ്കയിലെ വടക്ക് കിഴക്കൻ പ്രവിശ്യയിൽ നാൽപ്പതിനായിരം വീടുകൾ ഇന്ത്യ നിർമ്മിച്ച് നല്കി കഴിഞ്ഞ വർഷം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രീലങ്കയിലേക്കുള്ള രണ്ടാം സന്ദർശനവേളയിൽ പതിനായിരം വീടുകൾ നിർമ്മിച്ച് നല്കുന്നതിനുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു

എ ബെൻഡ് ഇൻ ദി റിവർ എ ഹൌസ്ട് ർഫ്ാർ മിസ്റ്റർ ബിശ്വാസ് എന്നിവയാണ് പ്രശസ്തമായ നോപ്പിലുകൾ

കേന്ദ്ര സഹമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും മുതിർന്ന ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും

രാജ്നാഥ് സിംഗും സംഘവും ഹെലികോപ്റ്ററിലൂടെ സഞ്ചരിച്ച് വീക്ഷിക്കും തുടർന്ന് കൊച്ചിയിൽ എത്തുന്ന അദ്ദേഹം പറവൂർ താലൂക്കിലെ ക്യാമ്പിലേക്ക് റോഡ് മാർഗം പോകും

പിമാർ എം എൽ എമാർപ്പിസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ് എന്നിവരുമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തും

ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഡയറക്ടർ ജനറൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട് കര വ്യോമ നാവിക സേനയുടെയും തീരദേശ സേനയുടെയും സഹായം സംസ്ഥാനത്ത് ലഭ്യമാക്കിയിട്ടുണ്ട്

വൃഷ്ടിപ്രദേശത്ത് മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ നീരൊഴുക്കിൽ കുറവുണ്ടായിട്ടുണ്ട്

ജലനിരപ്പ് കുറഞ്ഞെങ്കിലും മഴയടക്കം സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമേ ഷട്ടർ അടക്കുന്ന കാര്യം തീരുമാനിക്കൂ

ഫൈനലിൽ ജയറാം ഇന്തോനേഷ്യയുടെ ഷെസാർ ഹിരെൻ റുഷ്താവിറ്റോയെ നേരിടും

ആനകളെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകശ്രദ്ധ ആകർഷിക്കുന്നതിനായാണ് ഈ ദിനാചരണം നടത്തുന്നത്

ആനകളുടെ എണ്ണത്തിൽ കർണ്ണാടകമാണ് മുന്നിൽ